ഇന്ത്യക്കാരെ പാകിസ്ഥാൻ മോചിപ്പിച്ചു

തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവച്ചു

വൃക്കസംബന്ധമായ അസുഖത്തെത്തുടർന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഒരാഴ്ചയായി വെന്റിലേറ്ററിലായിരുന്നു ഇന്ന് ഉ ായ മസ്തിഷ്കാഘാതവും അദ്ദേഹത്തിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാക്കി

എ സർക്കാരിന്റെ കാലത്താണ് സി

എം നേതാവായിരുന്ന ചാറ്റർജി ലോക്സഭാ സ്പീക്കറായത്

നിലപാടുകളിലെ കാർക്കശ്യം കൊ ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവായിരുന്ന അദ്ദേഹം

കൊൽക്കത്തയിലെ പ്രസിഡൻസി കോളേജ് കൽക്കത്ത യൂണിവേഴ്സിറ്റി കേംബ്രജിലെ ജീസസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം സിപിഎം പിന്തുണയോടെയുളള സ്വതന്ത്ര ലോക്സഭാ എംപിയായി ആണ് അദ്ദേഹത്തിന്റെ പാർലമെന്റി ജീവിതം ആരംഭിക്കുന്നത് പത്തു തവണ ലോക ്സഭയിൽ എംപിയായിരുന്നു

പിന്നീട് അദ്ദേഹം പൊതു ജീവിതം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക്സഭയിലെ നിര്യാണത്തിൽ നിറസാന്നിധ്യമായിരുന്ന അനുഭവജ്ഞാനിയായ പാർലമെന്റേറിയനായിരുന്നു ചാറ്റർജിയെന്ന് ശ്രീ കോവിന്ദ് ട്വിറ്ററിൽ കുറിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന സോംനാഥ് ചാറ്റർജി ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കി എന്ന് പ്രധാനമന്ത്രിയും ട്വീറ്റ് ചെയ്തു കോൺഗ്രസ്സ് പ്രസിഡന്റ് രാഹുൽഗാന്ധിയും അനുശോചനം രേഖപ്പെടുത്തി

ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കാര്യമായി കുറഞ്ഞെങ്കിലും ചെറുതോണി അണക്കെട്ടിലെ അഞ്ച് ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

കേരളം അടക്കമുളള സംസ്ഥാനങ്ങളിൽ ര ു ദിവസത്തേയ്ക്കു കൂടി മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പു ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ചതിനാൽ കനത്ത കാറ്റിനും സാധ്യതയു ് ഒഡീഷ തീര കർണാടക ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ പെയ്യും

മേഖലയിലെ റോഡുകളിൽ മണ്ണിടിച്ചിലു ായതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങി

മാലദീപിൽ സുസ്ഥിരമായ ഗവൺമെന്റ് ഉ മാവുമെന്നും ശ്രീ

ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയു അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് അയൽരാജ്യമെന്ന നിലയിൽ മാലദ്രീപ്പിൽ സ്ഥിരതയും സമാധാനവുമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അന്താരാഷ്ട്രിയലത്തിൽ പരിഗണിക്കപ്പെടേ രാഷ്ട്രീയ പ്രതിസന്ധികളാണ് അടുത്തിക്കാല്ത്ത് ആ രാജ്യത്ത് സംഭവിക്കുന്നത് പ്രസിഡന്റ് അബ്ദുള്ള യാമീൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനുശേഷം മാലദ്ധീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞതായും ശ്രീ

അയൽരാജ്യമായ നേപ്പാളിനെപ്പറ്റി സംസാരിക്കുന്നതിനിടെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയും നേപ്പാളും അടുത്ത ബന്ധമാണ് കാത്ത് സൂക്ഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നാളെ വാഗ അതിർത്തിയിൽ ഇവരെ ഇന്ത്യൻ അധികൃതർക്ക് കൈമാറും

അസ്റ്റബ്ലിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇന്ന് സ്ത്യപ്രതിജ്ഞ ചെയ്തു

ഒറ്റ കുടുംബത്തിൽ വെവ്വേറെ വായ്പയെടുത്തിട്ടുള്ള എല്ലാവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും നിലവിൽ ഒന്നരലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ ഒരുകുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഇളവ് അനുവദിച്ചിരുന്നുള്ളൂ

കനത്ത മഴയെ തുടർന്ന് ദേശീയപാത അടച്ചതിനെ തുടർന്നാണ് ഭഗവതിനഗർ ബേസ് ക്യാമ്പിൽ നിന്നുള്ള തീർത്ഥാടനം നിർത്തലാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു

തടവിലായതിന് ശേഷം ഇതാദ്യമായാണ് ഷെരീഫ് കോടതി മുമ്പാകെ ഹാജരാകുന്നത്

ഇന്ധനവില വർദ്ധനവ് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിച്ചോ എന്ന് മനസിലാക്കുന്നതിനും സുരക്ഷാച്ചെലവിന് വേ ി കമ്പനി വിനിയോഗിക്കുന്ന തുകയിൽ കുറവ് വരുത്തിയിട്ടു ാ എന്ന് ക െ ത്തുന്നതിനും വേ ിയാണ് പരിശോധന നടത്തുന്നത്

ഇന്ന് നടന്ന ഉത്തര ദക്ഷിണ കൊറിയൻ നേതാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം മൂൺ ജേ ഇന്നും കിം ജോങ് ഉന്നും നേരത്തെ ര തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

ഉല്ലാസ് നഗറിലെ അമാൻ തിയേറ്ററിന് സമീപം ഒരു മെഡിക്കൽ ഷോപ്പിലാണ് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ തീപിടുത്തം ഉ ായത് ഫയർഫോഴ്സ് അഞ്ച് മണിക്കൂർ നീ പരിശ്രമത്തിന് ഒടുവിൽ തീകെടുത്തി

നാഗ്പൂരിൽ സമാപിച്ച ഏകലവ്യകാൽ വിദ്യാലയത്തിൽ പരിശീലന പരിപാടിയിൽ പ്രസംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മഹാരാഷ്ട്രയില്ല പിന്നോക്ക ജില്ലയായ ഗഡിചിറോളിയിലെ അമൂല്യമായ പ്രകൃതി സമ്പത്തിന്റെ നിക്ഷേപം പ്രയോജനപ്പെടുത്തേ തിന്റെ ആവശ്യകതയും മന്ത്രി ചൂ ിക്കാട്ടി

വിനോദസഞ്ചാര പൊലീസ് വിഭാഗത്തിന് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പരിശീലനം നൽകുമെന്നും ഐ ജി പറഞ്ഞു